ഇന്ത്യ ശ്രീലങ്ക ഉഭയകക്ഷി ചർച്ച ഇന്ന് അയൽ രാജ്യവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആദ്യ വിർച്ചൽ ചർച്ചയാണിത്

ഉയർന്നു കേരളം ്അതീവ ജാഗ്രതയിൽ

ഇനി ഓർമ്മകളിൽ നിറകണ്ണുകളോടെ വിട നൽകി സംഗീതലോകം

നമുക്കാവശൃമായ ഭാവി ഐകൃ രാഷ്ട്ര സംഘടനയുടെ ആവശ്യം ബഹുമുഖതയ്ക്കുള്ള പ്രതിബദ്ധത അതിനായുള്ള കൂട്ടായ ശ്രമം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തവണത്തെ പ്രമേയം

ഒരു അയൽ രാജ്യവുമായി വെർചൽ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ആദ്യ ചർച്ച എന്ന പ്രത്യേകതയും ഇന്നത്തെ കൂടിക്കാഴ്ചയ്ക്കുണ്ട് കോവിഡ് സൃഷ്ടിച്ച വെല്ലുവിളിക്കിടെ ഇരുരാജൃങ്ങളും തമ്മിലുള്ള ദൃഢബന്ധത്തിനും രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള പൈതൃകം പങ്കൂവയ്ക്കലിനും വെർചൽ യോഗം വഴിവയ്ക്കും

ഇന്ത്യൻ നാവിക സേനയും ജപ്പാന്റെ മാരിടൈം സെൽഫ് ഡിഫൻസ് ഫോഴ്സുമാണ് സംയുക്ത അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ഇന്തൃയും ജപ്പാനും തമ്മിലുള്ള നാവിക സഹകരണത്തിന്റെ വ്യാപ്തി കഴിഞ്ഞ കുറച്ചുവർഷങ്ങളായി വർദ്ധിച്ചിട്ടുണ്ട്

ആഗോള നന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഇരു രാജ്യങ്ങളും നടത്തുന്ന നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണു നാവിക അഭ്യാസത്തെ കണക്കാക്കുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നാവിക സഹകരണത്തിന്റെ വ്യാപ്തിയും പ്രതിരോധബന്ധങ്ങളും ശക്തിപ്പെടുത്താൻ സംയുക്ത സൈനിക അഭ്യാസം വഴിതെളിക്കും വെസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡിങ് ഫ്ലാഗ് ഓഫീസർ റിയർ അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് ആകാശവാണി

തൃമിഴ്നാട് സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം

രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു ഇന്നലെ ഉച്ചയോടെ ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു എസ്

മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ജന്മദിനാശംസകൾ നേർന്നു ട്വിറ്ററിലൂടെയാണ് ശ്രീ മൻമോഹൻ സിങ്ങിനെ പ്രധാനമന്ത്രി ആശംസകളറിയിച്ചത്

ആറിന്റെ സ്ഥാപക ദിനമായ ഇന്ന് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു രാജ്യത്തെ ഗവേഷണ രംഗത്ത് സി

ആർ വഹിക്കുന്ന പങ്ക് പ്രശംസനീയമാണെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

ഇന്നലെ ബോളിവുഡ് നടൻ രാക്ടുൽ പ്രീത് സിംഗ് നടി ദീപിക പദുക്കോണിന്റെ മാനേജർ ക്രിഷ്മ പ്രകാശ് ധർമ്മ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഫ്രൊഡ്യൂസർ ക്ഷീതിജ് രവി എന്നിവരും എൻ സി ബി യുടെ മുന്നിൽ ഹാജരായിരുന്നു

നിലവിൽ ഒൻപത് ലക്ഷത്തി അറുപതിനായിരം കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത്

ചൈനയിൽ കോവിഡ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഇതുവരെ പത്തു ലക്ഷ്ത്ത്തോളം ആളുകളാണ് ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചത് കൂട്ടായ പ്രതിരോധ പ്രവർത്തനങ്ങളും ആവശ്യമായ മുൻകരുതലുകളും എടുത്തില്ലെങ്കിൽ പത്തു ലക്ഷം പേർ കൂടി മരിക്കുമെന്നത് അസംഭവ്യമല്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി

തമിഴ്നാട്ടിലും ഉത്തർപ്രദേശിലും ടെലി പരിശോധന ഒരു ലക്ഷം കടന്നതായി ആരോഗൃമന്ത്രാലയം ട്വിറ്ററിൽ അറിയിച്ചു കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ആശുപത്രിയിൽ പോകാതെ തന്നെ ഡോക്ടറെ കാണാനുള്ള ഇ സഞ്ജീവനി ടെലികൺസൽട്ടേഷൻ സംവിധാനം ഏർപ്പെടുത്തിയത്

കിഴ്ക്കൻ ലഡാക്ക് മേഖലയിൽ ചൈനയുമായുള്ള സംഘർഷ്ങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സേനയുടെ പ്രതികരണം ആക്യാശമാർഗമുള്ള ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യൻ വ്യോമസ്സേന പൂർണ്ണമായും തയ്യാറാണെന്ന് സേനാവൃത്തങ്ങൾ അറിയിച്ചു

ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഇത് മുതൽക്കൂട്ടാകുമെന്ന് വ്യോമയാനമന്ത്രി ഹർദ്ദീപ്സിംഗ് പുരി പറഞ്ഞു

ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ നികുതി വെട്ടിപ്പുകൾ നികുതി നൽകാതെ ഒഴിഞ്ഞുമാറൽ പ്രാധാന്യമുള്ള പരിശോധനകൾ അന്താരാഷ്ട്ര നികുതി എന്നിവയുമായി ബന്ധപ്പെട്ട അപ്പീലുകൾ ഒഴികെയുള്ളവ വ്യക്തി നേരിട്ട് ഹാജരാകാതെ സമർപ്പിക്കാറ്മെന്ന് പ്രത്യക്ഷ നികുതി ബോർഡ് വ്യക്തമാക്കി നികുതിദായകർക്ക് വീടുകളിൽ ഇരുന്നുതന്നെ നികുതി സമർപ്പിക്കാ മെന്നും അതിലൂടെ സമയം ലാഭിക്കാമെന്നും വകുപ്പ് വ്യക്തമാക്കി